ബന്ധം ശക്തിപ്പെടുത്താൻ യാത്ര സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി

ഉപയോഗിക്കുകയാണെന്ന് കോൺഗ്രസ് കെവിൻ വധക്കേസ് ദുരഭിമാനക്കൊലയെന്ന് കോടതി

ഈ രാജ്യങ്ങളുമായി സഹകരണത്തിന്റെ പുതിയ മാനങ്ങൾ തേടാനും ബന്ധം ശക്തിപ്പെടുത്താനും സന്ദർശനം സഹായിക്കുമെന്ന് യാത്ര തിരിക്കുംമുമ്പ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു ഇന്ന് വൈകീട്ട് ഫ്രാൻസിലെത്തുന്ന അദ്ദേഹം ഫ്രഞ്ച് പ്രസി ഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും പ്രതി രോധം സമുദ്രയാന സുരക്ഷ ഭീകരവാദത്തിനെതിരായ പോരാ ട്ടം സിവിൽ ആണവോർജ്ജം തുടങ്ങിയ് മേഖലകളിൽ സഹക രണം ശക്തിപ്പെടുത്തുന്നത് ചർച്ചാവിഷയമാകും വ്യാപാരവും നിക്ഷേപവും വർധിപ്പിക്കുന്നതും ചർച്ച ചെയ്യും പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ഫ്രഞ്ച് പ്രധാനമന്ത്രിയെയും അദ്ദേഹം കാണും രണ്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി നാളെ മോദി യു എ

എ

യുടെ പരമോന്നത സിവി ലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സായദ് മോദിക്ക് സമ്മാ നിക്കും ശനിയാഴ്ച ബഹറൈനിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി ഖാലിഫ ബിൻ സൽമാൻ അൽ ഖാലിഫ രാജകുമാരനുമായി ഉഭ യകക്ഷി അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യും ഐ എൻ എക്സ് മീഡിയാ കേസിൽ അറസ്റ്റിലായ മുൻ കേന്ദ്ര മന്ത്രി പി ചിദംബരത്തെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും ഡൽഹിയിലെ സിബിഐ ആസ്ഥാനത്തെ ഗസ്റ്റ് ഹൌസിൽ ചിദം ബരത്തെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇന്നലെ രാത്രി ജോർബാഗിലെ വസതിയിൽ നിന്നാണ് ചിദം ബരത്തെ സിബിഐ അറസ്റ്റു ചെയ്തത് ചിദംബരത്തെ കസ്റ്റഡി യിൽ വിട്ടുകിട്ടാൻ സിബിഐയും ജാമ്യത്തിന് ചിദംബരവും അപേക്ഷ നൽകുമെന്നാണ് റിപ്പോർട്ട് വ്യക്തികൾക്കെതിരായ പക തീർക്കുന്ന വകുപ്പുകളാക്കി സിബിഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ഗവ

കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ജനാധിപതൃത്തെയും നിയമവാഴ്ച യെയും പകൽ വെളിച്ചത്തിൽ കൊല്ലുന്നതിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചതെന്ന് കോൺഗ്രസ് വക്താവ് രൺദ്വീപ് സുർജെവാല ഡൽഹിയിൽ പറഞ്ഞു ഐ എൻ എക്സ് മീഡിയാ കേസിൽ ഒട്ടേറെ പ്രതികളുണ്ടാ യിട്ടും അവരെയൊന്നും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും നിയമത്തിന്റെ ഒരടിസ്ഥാനവും ഇല്ലാതെ മുതിർന്ന രാഷ്ട്രീയ നേതാവിനെയാണ് അറസ്റ്റു ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ എല്ലാവ രെയും നിശബ്ദരാക്കാൻ വേണ്ടിയാണ് മുതിർന്ന നേതാവിനെ തിരെ ഇല്ലാത്ത കുറ്റം ആരോപിക്കുന്നതെന്നും സുർജെവാല പറ ഞ്ഞു ഐ എൻ എക്സ് മീഡിയാ പ്രമോട്ടർമാരായ പീറ്റർ മുഖർജി യുമായോ അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ദ്രാണി മുഖർജിയുമായോ ഒരു ബന്ധവുമില്ലെന്നും അവരെ ഒരിക്കലും കണ്ടിട്ടില്ലെന്നും ചിദംബ രത്തിന്റെ മകൻ കാർത്തി ചിദംബരം വ്യക്തമാക്കി ചിദംബര ത്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പകപോക്കലാണെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ആരോപിച്ചു ജമ്മു കശ്മീരിൽ നിന്ന് സൈന്യത്തെ ഉടൻ പിൻവലിക്കാൻ ഉദ്ദേശ്യമില്ലെന്ന് കേന്ദ്രആഭ്യന്തരസഹമന്ത്രി ജി കിഷൻ അറിയി ച്ചു പാക്കിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യ എന്തിന് ഉടൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് അദ്ദേഹം ഹൈദരാബാ ദിൽ ചോദിച്ചു പാക്കിസ്ഥാൻ കശ്മീരികളെ പ്രകോപിക്കാനും സമാധാനം ഇല്ലാതാക്കാനും ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറ ഞ്ഞു ജമ്മു കശ്മീരിൽ ഇപ്പോൾ സ്ഥിതി ശാന്തമാണെന്നും ആഭ്യ ന്തരസ്ഹമന്ത്രി അറിയിച്ചു രാജ്യത്തെ എല്ലാ ജില്ലകളിലും ഇ

ഐ ആശുപത്രികൾ നില വിലുണ്ടെന്നും ഇതിന് പുറമേയാണ് പുതിയ ആശുപത്രികൾ അനു വദിക്കുന്നതെന്നും അദ്ദേഹം ഹൈദരാബാദിൽ പറഞ്ഞു

വൈകീട്ട് ന്യൂഡൽഹിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തെ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പാർട്ടി അധ്യക്ഷ സോണിയാ ഗാന്ധിയും മുൻ പ്രധാനമന്ത്രി ഡോ മൻമോ ഹൻസിങും അഭിസംബോധന ചെയ്യും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഒപ്പു വെച്ച പഞ്ചാബ് അസം മിസോറാം കരാറുകൾ ഇന്ത്യയെ ശക്തിപ്പെടു ത്തിയെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി അഭിപ്രായപ്പെ ട്ടു വർഷങ്ങളായി നടന്നിരുന്ന അക്രമങ്ങളും ഏറ്റുമുട്ടുകളും ഈ കരാറുകൾ വഴി ഇല്ലാതാക്കാൻ കഴിഞ്ഞത് രാജീവ്ഗാന്ധിയുടെ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം ടിറ്ററിൽ പറഞ്ഞു പരസ്പര ആദരവിന്റെയും ധാരണകളുടെയും സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും അടിത്തറയിൽ കെട്ടിപ്പടുത്ത ഈ കരാ റുകളാണ് ഇന്ത്യൻ യൂണിയനെ കൂടുതൽ ശക്തമാക്കിയതെന്നും രാഹുൽ പറഞ്ഞു

ഇവരുടെ ശിക്ഷ മറ്റന്നാൾ പ്രഖ്യാ പിക്കും നീനുവിന്റെ പിതാവുംഅഞ്ചാം പ്രതിയുമായ ചാക്കോ ഉൾപ്പെടെ നാല് പ്രതികളെ കോടതി വെറുതെ വിട്ടു കെവിന്റെ കൊലപാതകം ദുരഭിമാനക്കൊലയാണെന്നും പ്രതികൾക്കെതിരെ കൊലക്കുറ്റും ഉൾപ്പെടെ തെളിഞ്ഞതായും കോടതി നിരീക്ഷിച്ചു സംശയത്തിന്റെ ആനുകൂല്യം നൽകിയാണ് ചാക്കോയെ കോടതി വെറുതെവിട്ടത് നാല് പ്രതികളെ വെറുതെ വിട്ടതിനെ തിരെ അപ്പീൽ നൽകുമെന്ന് കെവിന്റെ പിതാവ് ചാക്കോ പ്രതിക രിച്ചു

തൊട്ടടുത്ത് ദിവസം കൊല്ലം തെന്മല ചാലിയക്കര പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെടുത്തു തെന്മല സ്വദേശി നീനു ചാക്കോയെ വിവാഹം ചെയ്തിന്റെ പ്രതി കാരമായി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്

ആറുമാസത്തിനകം കേസിന്റെ വിചാരണ പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദേശിച്ചിരുന്നെങ്കിലും മൂന്ന് മാസത്തിനകം പൂർത്തിയാക്കിയാണ് വിധി പറഞ്ഞത് ചെക്ക് കേസിൽ യു എ ഇയിൽ അറസ്റ്റിലായ ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയെ ചിലർ കുടുക്കിയതാണെന്ന് പിതാവും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഒത്തു തീർപ്പെന്ന പേരിൽ വിളിച്ചു വരുത്തി അറസ്റ്റു ചെയ്യിപ്പിക്കുകയായിരുന്നുവെന്നും അറ സ്റ്റിനെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം ആലപ്പുഴയിൽ അറിയിച്ചു അജ്മാൻ ജയിലിൽ കഴിയുന്ന തുഷാറിന് ഉടൻ ജാമൃം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റിൻഡീസിനെ നേരിടും ഇന്ത്യൻ സമയം രാത്രി ഏഴിന് ആന്റിഗ്വയിലെ നോർത്ത് സൌണ്ട് സ്റ്റേഡിയത്തിലാണ് മത്സ രം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ പുതുതായി തുടങ്ങിയ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇരു രാജ്യങ്ങളുടെയും ആദ്യ മത്സരമാ ണിത് ഡ്യൂറന്റ്കപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഗ്യോകുലം കേരള എഫ്

കൊൽക്കത്ത യിൽ നടന്ന സെമിയിൽ ഈസ്റ്റ് ബംഗാളിനെ ഷൂട്ടൌട്ടിൽ പരാജ യപ്പെടുത്തിയാണ് ഗോകുലം ഫൈനലിലെത്തിയത് റിയൽ കശ്മീ രിനെ ഒന്നിനെതിരേ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് മോഹൻബഗാൻ ഫൈനലിൽ യോഗൃത നേടിയത് ബാങ്കോംഗിൽ നടന്ന ഏഷ്യാ പസഫിക് ബോഡി ബിൽഡിംഗ് ചാംപ്യൻഷിപ്പിൽ വെള്ളിമെഡൽ നേടിയ ജിനുവിന് ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ നേതൃത്വത്തിൽ കോഴിക്കോട് റയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നല്കി നാല് തവണ മിസ്റ്റർ കാലിക്കറ്റും ഒരു തവണ മിസ്റ്റർ കേരള പദവിയും നേടിയ ജിനു പ്രപളയദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന തിനിടെയാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ പോയത് ഇരുപത്തി എട്ടാമത് സംസ്ഥാന സീനിയർ ജൂനിയർ ആന്റ് മിക്സഡ് വടംവലി ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച കണ്ണൂരിൽ ആരംഭിക്കും

പവിത്രൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

കണ്ണൂർ കോർപറേഷൻ നാലുവർഷം എൽഡിഎഫ് ഭരിച്ചത് തന്റെ ഔദാര്യത്തിലാണെന്ന ഡെപ്യൂട്ടി ്മേയർ പി കെ രാഗേഷിന്റെ അവകാശവാദം പരിഹാസ്യമാണെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു കക്ഷിരഹിതനായി വിജയിച്ച രാഗേഷ് എൽഡിഎഫിന് പിന്തുണ ന്ൽകുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തെ എൽഡിഎഫ് ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു വയനാട്ടിൽ ഗവ

വൃവസ്ഥകൾക്ക് വിധേയമായി ഭൂമി ഏറ്റെടുക്കാൻ ഇന്നലെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു കോട്ടത്തറ വില്ലേജിൽ നേരത്തെ മെഡിക്കൽ കോളേജിനായി സ്ഥലമേറ്റെടുത്തെങ്കിലും കഴിഞ്ഞ പ്രളയ കാലത്ത് ഈ പ്രദേശത്ത് ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി

തീരുമാനിച്ചത് ചാവക്കാട് പുന്ന നൌഷാദ് വധക്കേസിൽ രണ്ട് പേർ കൂടി പിടിയിലായി പാലയൂർ കരിപ്പായിൽ ഫാമിസ് അബൂബക്കർ ചെറുതുരുത്തി ഇടക്കാട്ടിൽ മുഹമ്മദ് മുസ്തഫ എന്നിവരാണ് പിടിയിലായത്

കോഴിക്കോട് ജില്ലയിൽ കക്കയം ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ഇപ്പോഴും മഴ പെയ്യുന്നതിനാൽ മുൻകരുതൽ എന്ന നിലയിൽ കോഴിക്കോട് കക്കയം ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ ഒരടി വീതം തുറയ്ക്കാൻ ജില്ലാകലക്ടർ നിർദേശം നല്കി

വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ പാലക്കാട് മലമ്പുഴ ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചു അനുബന്ധ പുഴകളിൽ ജലം ഉയരാൻ സാധ്യത കണക്കിലെടുത്ത് നദീ തീരങ്ങളിലെ പത്തോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു

സ്പിൽവേ ഷട്ടർ അഞ്ച് സെന്റീമീറ്റർ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കും മഴക്കെടുതിയിൽ വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ച ജല്ലറി ഉടമക്ക് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി അഞ്ചു ദിവസത്തി നകം നഷ്ടപരിഹാരത്തുക നൽകി പ്രളയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇൻഷുറൻസ് കമ്പനി നൽകുന്ന ആദ്യ ഇൻഷുറൻസ് ക്ലെയിമാണിത്

വിവിധ ഗാന്ധിയൻ പ്രസ്ഥാനങ്ങ ളുടെ സഹകരണത്തോടെയാണ് സംഗമം സംഘടിപ്പിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും ജില്ലയിലെ എം എൽ എമാരും പരിപാടിയിൽ പങ്കെടുക്കും